പ്രധാനമന്ത്രി വിളിച്ച മുഖൃമന്ത്രിമാരുടെ യോഗം പുരോഗമിക്കുന്നു

സംഭരിക്കാൻ സംസ്ഥാനം നട്പടികൾ ആരംഭിച്ചു സർവകക്ഷിയോഗം തിങ്ക്ളാഴ്ച

നിയന്ത്രണങ്ങൾ

കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്ന് ലക്ഷം കടന്നു

മുംബൈ ഇന്ത്യൻസിനെ നേരിടും

കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് കേരളം ഗുജറാത്ത് ദില്ലി രാജസ്ഥാൻ കർണാടക മുഖൃമന്ത്രിമാരാണ് വെർച്ചൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആരോഗ്യമന്ത്രി ഡോ

രാജ്യത്തെ പ്രമുഖ ഓക്സിജൻ നിർമാതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും

കമ്പനികളുമായി ച്ചർച്ച നടത്താനും വാങ്ങേണ്ടതിന്റെ അളവും വിലയും നിശ്ചയിക്കാർനും ചീഫ് സെക്രട്ടറി ധന ആരോഗൃ സെക്രട്ടറിമാർ എന്നിവ്ക്ക് ചുമതലപ്പെടുത്തിയതായി മുഖൃമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

നാളെ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്

പാഴ്സലും ഹോം ഡെലിവറിയും അനുവദിക്കും

ബസ് ട്രെയിൻ വിമാന യാത്രക്കാരെ കൊണ്ടുപോകുന്ന സ്വകാരൃ ടാക്സി വാഹനങ്ങൾ തടയില്ല

കോയമ്പീക്കൂ്രിൽ കണ്ടെടുത്ത സനു മോഹന്റെ കാർ തൃക്കാക്കര പൊലീസ് സ്റ്റ്ഷനിലെത്തിച്ചു

ഷാജി എം

എ

ഇന്ന് രാവിലെയാണ് കോഴിക്കോട് തൊണ്ടയാടുള്ള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഓഫീസിൽ ഹാജരായത് മുസ്ലിം ലീഗ് സെക്രട്ടറി കൂടിയായ കെ

ഇതിന് രേഖ ഹാജരാക്കാൻ ഒരാഴ്ച ഷാജിക്ക് സമയം അനുവദിച്ചിരുന്നു

തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ തെരെഞ്ഞടുപ്പ് പ്രകടനം വിലയിരുത്തും

തിരഞ്ഞെടുപ്പു പ്രചാരണ കാലത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാത്താണ് കോവിഡ് വ്യാപനം ഇത്രയും രൂക്ഷമാക്കിയതെന്നു ചൂണ്ടിക്കാട്ടിയാണു ഹർജികൾ

സെഞ്ചുറി നേടിയ മലയാളി താരം ദേവ്ദത്ത് പടിക്കലും അർധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ വിരാട് കോലിയും ചേർന്ന് ബാംഗ്ലൂരിന്റെ വിജയം എളുപ്പമാക്കി ഇന്ന് ചെന്നൈ എംഎ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബ് മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും